ന്യൂഡൽഹിയിൽ തുടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവ്വഹിക്കും

എന്നിവയിൽ പങ്കാളിയാകാൻ ചെക്ക് റിപ്പബ്ലിക്കിന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ക്ഷണം

അവസാനത്തെയും മൽസരം ഇന്ന് ഓവലിൽ ആരംഭിക്കും

കൂടുതൽ വിവരങ്ങളുമായി നന്ദകുമാർ

വൈദ്യുതീകരണം ഇതര ഇന്ധനം പൊതൂഗതാഗത സംവിധാനം പുനസ്ഥാപിക്കൽ ചരക്ക് നീക്കം സേപ്പിന് വിന്യാസം വസ്തുവിവര ശേഖരണം ചലനക്ഷമത് എന്നീ അഞ്ച് വിഷയങ്ങൾ ഉച്ചകോടി ചർച്ച ചെയ്യും

ജനങ്ങളിൽ ഗതാഗത സംവിധാനത്തെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാക്കാനും വൈദ്യുതീകരിച്ച വാഹനങ്ങൾ ഗതാഗതത്തിനായി കുടുതൽ പ്രോൽസാഹിപ്പിക്കുകയും ചെയ്യാനുള്ള നടപടികളെക്കുറിച്ചും ഉച്ചകോടിയിൽ ചർച്ച നടക്കും

രാജധാനി എഫ്

ന്യൂസ് ഡസ്ക് ആകാശവാണി

പ്രാഗിലെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഉത്പാദനത്തിൽ ശക്തമായ ചെക്ക് റിപ്പബ്ലിക് ഇക്കാര്യത്തിൽ ഇന്ത്യയുമായി കൈകോർക്കാവുന്നതേയുള്ളൂവെന്ന് അദ്ദേഹം പറഞ്ഞു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷിബിന്ധം മുന്നോട്ടുകൊണ്ടുപോകുന്നതിന് ചെക്ക് പ്രസിഡന്റ് സെമാനുമായി ചർച്ച നടത്തും ഇരു രാജ്യങ്ങളൂർ തമ്മിൽ സാങ്കേതിക വിദ്യ വ്യവസായം നിക്ഷേപം എന്നിവ് വ്ളർത്തുന്നതിന് ധാരാളം അവസരങ്ങളുണ്ട്

അടുത്ത വർഷം ജനുവരിയിൽ നടക്കുന്ന പ്രവാസി ഭാരതീയ ദിവസിൽ പങ്കെടുക്കാനും രാഷ്ട്രപതി ഇവരെ ക്ഷണിച്ചു ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണപത്രത്തിലും ഒപ്പ്വെയ്ക്കും ഇന്ന് ചെക്ക് പ്രധാനമന്ത്രി ആൻഡ്രൈ ബേബി സുമായി രാഷ്ട്രപതി കൂടിക്കാഴ്ച നടത്തും

കേന്ദ്രമന്ത്രിയുടെ ഈ ആഴ്ചയിലെ രണ്ടാമത്തെ അമേഠി സന്ദർശനമാണ് ഇത്

മുംബൈയിലെ പടിഞ്ഞാറൻ കോസ്റ്റ് ഗാർഡ് ആസ്ഥാന മന്ദിരം ഇന്നലെ സന്ദർശിച്ചുവേളയിലാണ് ഇക്കാര്യം അദ്ദേഹം അഭിപ്രായപ്പെട്ടത് കോസ്റ്റ് ഗാർഡിന്റെ പ്രാവർത്തിക തയ്യാറെടുപ്പുകൾ അടിസ്ഥാനസൌകര്യ വികസനം തീര സ്പൂർക്ഷാ സംവിധാനം എന്നിവ മന്ത്രി വിലയിരുത്തി കപ്പലുക്ളില്ലെ എണ്ണ മലിനീകരണം കപ്പലുകൾ നിലതെറ്റുന്ന അവസ്മൂ കൊടുങ്കാറ്റ് തുടങ്ങിയ സമുദ്ര സംബന്ധിയായ അടിയന്തരൂപ്പ്പ്പെയെ നേരിടാനുള്ള മാർഗ്ഗങ്ങളെക്കുറിച്ചും ഡോ

മൽസ്യതൊഴിലാളി സമൂഹത്തിന്റെ സുരക്ഷയുടെ ഭാഗമായുള്ള മുൻകരുതലുകൾ എടുക്കേണ്ട നടപടികളെക്കുറിച്ചും ചർച്ചചെയ്തു അടിയന്തര സാഹചര്യങ്ങളിൽ കോസ്റ്റ് ഗാർഡ് നടത്തിവരുന്ന ദുരന്ത ലഘൂകരണ പ്രർത്തനങ്ങളിൽ മന്ത്രി സംതൃപ്തിരേഖപ്പെടുത്തി

വടക്കു കിഴക്കൻ ഹിമാലയ മേഖലകളിലെ ഗ്രൂപ്പ് ഒന്ന് സംസ്ഥാനങ്ങളിൽ പി

വൈ ജി വീടുകൾ നിർമ്മിച്ചു നൽകുന്ന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിച്ചതിനാണ് ഏറ്റവും നല്ല സംസ്ഥാനത്തിനുള്ള അവാർഡിന് അസം അർഹമായത് ബ്ലോക്ക് തലത്തിലും ജില്ലാ തലത്തിലും മൂന്ന് അവാർഡുകളും അസം കരസ്ഥമാക്കി കാംരൂപ് ധേമാജി ഗോൾപാറ ജില്ലകൾക്കാണ് വടക്കു കിഴക്കൻ മേഖലയിലെ ആദ്യ മൂന്ന് സ്ഥാനങ്ങൾ പുരസ്കാര വിതരണ ചടങ്ങ് തിങ്കളാഴ്ച ന്യൂഡൽഹിയിൽ നടക്കും

സ്വകാര്യ വാഹനങ്ങളൊടൊപ്പം ട്രാൻസ്പോർട്ട് ബസുകളെയും ടോൾ നൽകുന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്

ഇ

നീരവ് മോദിയുടെ ജല്ലറി ഗ്രൂപ്പായ ഫയർസ്റ്റാർ ഇന്റർനാഷണലിന്റെ സി ഇ

നീരവ്മോദിയ്ക്കും സമാനമായ രീതിയിൽ ഇന്റർപോൾ നോട്ടീസ് നൽകിയിരുന്നു

അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ആണവ നിരായുധീക്ടരണത്തിന് കിം ജോങ്ങ് ഉൻ തയ്യാറായത്

ഇക്കാര്യത്തിൽ ആദ്യഘട്ട ചർച്ചകൾ ഉത്തരകൊറിയൻ പ്രസിഡന്റ് കിം ജോങ്ങ് ഉന്നും ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് മൂൺ ജെയിയും തമ്മിൽ നടന്നിരുന്നു

ആണവ നിരായുധീകരണത്തിന് ഉത്തരകൊറിയൻ പ്രസിഡന്റ് തയ്യാറാവുന്നത് സ്വഗതാർഹമാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ട്വീറ്റിലൂടെ വ്യക്തമാക്കി

എസ് ആർ

ബംഗളുരുവിൽ ആരംഭിച്ച ആറാമത് സ്പെയ്സ് എക്സ്പോയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിക്ഷേപണ വാഹനങ്ങളുടെ നിർമ്മാണത്തിൽ സ്വകാര്യമേഖലയ്ക്കായി കേന്ദ്രഗവൺമെന്റ് ഒൻപതിനായിരം കോടി രൂപ അനുവദിച്ചതായി അദ്ദേഹം പറഞ്ഞു

ഒ യുടെ മനുഷ്യനെ വഹിച്ചുകൊണ്ടുള്ള ഗഗൻയാൻ പദ്ധതിയ്ക്ക് സാങ്കേതിക സഹായം കണ്ടെത്തുന്നതിന് ഫ്രഞ്ച് സ്പെയ്സ് ഏജൻസിയായ സി

ഇ എസുമായി ഐ എസ് ആർ ഒ കരാർ ഒപ്പുവച്ചതായി സി എൻ

എസ് പ്രസിഡന്റ് ജീൻ എസ് ലേ ഗാൾ പറഞ്ഞു

പരിസ്ഥിതി വിവരങ്ങളും വന്യജീവി വിവരങ്ങളും ശേഖീരിക്കുന്നതാണ് ഈ സാറ്റലൈറ്റ്

ഇന്ത്യ സന്ദർശിക്കുന്ന ഇറാനിയൻ റോഡ് നഗരവികസന മന്ത്രി അബ്ബാസ് അഖൌണ്ടി ആണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് നിതി ആയോഗിന്റെ മൊബിലിറ്റി ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് ഇറാനിയൻ മന്ത്രി ന്യൂഡൽഹിയിലെത്തിയത് ഇറാൻ സെൻട്രൽ ബാങ്ക് വഴിയുള്ള ഇന്ത്യയുടെ ബാങ്കിങ് ഇടപാടുകൾക്കും അംഗീകാരമായതായി അദ്ദേഹം അറിയിച്ചു സിസ്താൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ചബഹാൻ തുറമുഖം ഇന്ത്യ ഇറാൻ അഫ്ഗാനിസ്ഥാൻ എന്നീ മദ്ധ്യേഷ്യൻ രാഷ്ട്രങ്ങളുടെ വ്യവസായ വികസനത്തിന്റെ നാഴികക്കല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് മൂന്ന് രാജ്യങ്ങളുടെയും വൃവസായ കുതിപ്പിന് തുറമുഖം സഹായകമാകുമെന്നാണ് പ്രതീക്ഷ

സാമ്പത്തിക തൊഴിൽ മേഖലകളിൽ ഇന്ത്യയും യുകെയും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുക എന്നതാണ് പാർലമെന്ററി ഗ്രൂപ്പിന്റെ ലക്ഷ്യം ഇന്ത്യൻ വംശജനായ ബ്രിട്ടീഷ് ലേബർ പാർട്ടി എം

നിലവിൽ ഡി ജി പി ആയിരുന്ന എസ് പി വൈദിനെ ജമ്മുകാശ്മീർ ഗതാഗത കമ്മീഷണറായി മാറ്റി നിയമിച്ചതിനെ തുടർന്നാണ് ദിൽബാഗ് സിങ് ഈ സ്ഥാനത്ത് എത്തിയത്

എസ് ഉദ്യോഗസ്ഥനാണ് ദിൽബാഗ് സിങ്ങ്

ഇതോടെ ബംഗ്ലാദേശ് രണ്ട് മൽസരങ്ങളിൽ നിന്ന് ആറു പോയിന്റുമായി ഗ്രൂപ്പിൽ ഒന്നാമതെത്തി

ഉദ്ഘാടന മൽസരത്തിൽ ഇന്ത്യയോട് ശ്രീലങ്ക പരാജയപ്പെട്ടിരുന്നു ഞായറാഴ്ച ഇന്ത്യ മാലദ്വീപിനെ നേരിടും

നിലവിലെ ഇംഗ്ലണ്ട് ട്ടീമിൽ മാറ്റമൊന്നുമില്ല

ഇത് സംബന്ധിച്ച് ഡെബ്റ്റ് റിക്കവറി ട്രൈബ്യൂണലുകളിൽ ഡി

ടി തീർപ്പാകാതെ കിടക്കുന്ന അപേക്ഷകളുടെ കാലതാമസം കുറയ്ക്കാനാണ് നടപടിയെന്ന് ധനകാര്യമന്ത്രാലയം അറിയിച്ചു